ദിനത്തിലും ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗ് പിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ്ചർച്ച നടത്തി

റഷ്യയിൽ നടക്കുന്ന ലോക വനിതാ ബോക്സിംഗ് ചാമ്പൃൻഷിപ്പിൽ മേരികോമിന് വെങ്കലം

നിലവിലെ രാഷ്ടീയസ്ഥിതികളും ഇരുരാജൃങ്ങൾക്കും പൊതുതാൽപരൃമുള്ള വിഷയങ്ങളും ചർച്ചയായി ഉഭയകക്ഷി ബന്ധം ഉറപ്പോടെ മുന്നോട്ടു കൊണ്ടുപോകുന്ന തീരുമാനങ്ങൾ ചർച്ചയെ തുടർന്നുണ്ടാകുമെന്നാണു പ്രതീക്ഷ

ഇന്ത്യയും ചൈനയും ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ സ്ഥാനം നിലനിർത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം ചർച്ചയിൽ അഭിപ്രായപ്പെട്ടു വിദേശകാര്യമന്ത്രി എസ് ജ്യയശങ്കർ ദേശീയസുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവർ ഇൻട്ട്ട്യെ പ്രതിനിധീകരിച്ചു കൂടുതൽ വിവരങ്ങളുമായി മല്ലിക

ഏഴാം നൂറ്റാണ്ടിലെ കടലോര ക്ഷേത്രസമുച്ചയത്തിൽ ഇരുവരും ഒരുമിച്ച് കലാപരിപാടികളും ആസ്വദിച്ചു ശ്രീ മോദിയുടെ അത്താഴവിരുന്നിലും ചൈനീസ് പ്രസിഡന്റ് പങ്കെടുത്തു നേരത്തെ ചെന്നൈയിലും മഹാബലിപുരത്തും ഷി ചിൻപിങ്ങിന് ഊഷ്മള സ്വീകരണമാണു നൽകിയത്

ചൈനീസ് പ്രസിഡന്റ് താമസിച്ച ഗിണ്ടിയിലെ ഐടിസി ഗ്രാൻഡ് ചോളയിലും പ്രധാനമന്ത്രി തങ്ങിയ മാമല്ലപുരത്തെ കോവളം താജ് ഫിഷർമെൻസ് ഗ്രോവ് ഹോട്ടലിലും കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ചർച്ച കഴിഞ്ഞ് പ്രധാനമന്ത്രിയുടെ ഉച്ചവിരുന്നിൽ പങ്കെടുത്ത ശേഷം ചൈനീസ് പ്രസിഡന്റ് ചെന്നൈ വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അൽപസമയത്തിനകം ചൈന എയറിന്റെ പ്രത്യേക വിമാനത്തിൽ ഷീ നേപ്പാളിലേക്ക് പുറപ്പെടും ന്യൂസ് ഡെസ്ക് ആകാശവാണി

തമിഴ്നാട് മാമല്ലപുരം കടപ്പുറത്തെ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിനൃങ്ങൾ നീക്കം ചെയ്താണ് പ്രധാനമന്ത്രി രാജൃത്തിന് മാതൃക കാട്ടിയത് കടൽത്തീരത്തെ പ്രഭാതസവാരിക്കിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ ശുചീകരണദൌത്യം പൊതുസ്ഥലങ്ങൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണെന്നും ആരോഗ്യം ഉറപ്പു വരുത്തുന്നതിന് ഇത് അനിവാരൃമാണെന്നും പ്രധാനമന്ത്രി പിന്നീട് ടിറ്ററിൽ കുറിച്ചു ഇന്ത്യ ചൈന ഉച്ചകോടിയിൽ പങ്കെട്ടൂക്കുന്നതിനാണ് പ്രധാനമന്ത്രി മാമല്പുരത്ത് എത്തിയത്

എല്ലാവിവരങ്ങളും ജനങ്ങൾക്ക് ഓൺലൈൻ വഴി സുതാര്യമായി ലഭ്യമാക്കുന്നതിന് ഗവൺമെന്റ് ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു

കോമോറോസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവെ ഉപരാഷ്ട്രപതിഎം

കോമറോസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രസിഡന്റ് അസാലി അസൌമാനിയിൽ നിന്നും ഉപരാഷ്ട്രപതി ഏറ്റുവാങ്ങി

ശശിതരൂർ ഡി എം കെ എം പി കനിമൊഴി ലോകസഭയില്ട്ട് സെക്രട്ടറി ജനറൽ സ്നേഹലത ശ്രീ വാസ്തവ രാജ്യസഭാ സ്ക്രെട്ടറി ജനറൽ ദേശ് ദീപക് വർമ എന്നിവരും ഇന്ത്യൻ സംഘത്തിലുണ്ട്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

മുൻ കർണാടക ഉപ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വര ഉൾപ്പെട്ട ബിസിനസ് ഗ്രൂപ്പിലാണ് റെയ്ഡ് നടത്തിയത്

മുബൈയിൽ ഫിലിം സർട്ടിഫ്ട്ടിക്ക്കേഷ്ൻ ആന്റ് റഗുലേഷൻ ഓഫ് ഓൺലൈൻ കന്റ് എന്ന വിഷ്ണ്യത്തിൽ നടന്ന ചർച്ചാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ആദ്ദേഹം

ഇരുസംസ്ഥാനങ്ങളിലെയും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തെരഞ്ഞെടുപ്പ് റാലികളിൽ സജീവമാണ്

ജെ

മഹാരാഷ്ട്രയിലെ ജനങ്ങൾക്കായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ ബി ജെ

അതിനിടെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേന ബി ജെ

സഖ്യത്തിലെ ചെറിയകക്ഷികൾ ബി ജെ

ജെ

മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്തെക്കു പടിഞ്ഞാറൻ നാഗ്പൂരിൽവീണ്ടും ജനവിധി തേടും

ജെ

ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗിആദിത്യനാഥ് കൽക്ക ജിന്ദ് നാരായണഘട്ട് സോനിപട്ട് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൊതുസ്സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ന്യൂസ്ഡെസ്ക് ആകാശവാണി

രാജ്യത്തെ കാർപെറ്റ് സ്ത്യ്പസായ മേഖലയുടെ ക്ഷേമത്തിനും നെയ്ത്തുകാരുടെ ഉന്നമനത്തിനുമായി ഗവൺമെന്റ് വിവിധ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര ടെക്സ്റ്റെൽ സെക്രട്ടറി രവി കപൂർ പറഞ്ഞു കൈകൊണ്ട് തുന്നിയ കാർപെറ്റുകളെ ബ്രാൻഡ് ചെയ്യാൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു

മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികൾ ഇക്കാര്യത്തിൽ വകവയ്ക്കുന്നില്ലെന്നും സൈനിക നീക്കങ്ങൾ തുടരുമെന്നുംതുർക്കി പ്രസിഡന്ററസീപ് തായ്പ് എർദോഗൻ ഇസ്താംപൂളിൽഅറിയിച്ചു ബുധനാഴ്ചമുതലാണ്തുർക്കി വടക്കൻ സിറിയയിലെഅതിർത്തി പ്രദേശത്ത്സൈനിക നടപടികൾആരംഭിച്ചത്

മുരളീധരൻ സീറോ മലബാർ സഭാമേജർ ആർച്ച് ബിഷപ് മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സംബന്ധിക്കും

അമ്പയറുടെ വിധിക്കെതിരെ ഇന്ത്യ അപ്പീൽ നൽകിയെങ്കിലും ഇന്റർനാഷണൽ ബോക്സിംഗ് കമ്മറ്റി അപ്പീൽ നിരാകരിക്കുകയായിരുന്നു

ഗ്രാംവിഭാഗത്തിൽ ആദ്യമായാണ് ലോകചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത്

ബീഹാറിലെറാഞ്ചിയിലാണ്മത്സരം നടക്കുന്നത്